അന്തിമ കണക്കുകൾ കൂടി ലഭ്യമാകുമ്പോൾ വോട്ടിങ്ങ് ശതമാനത്തിൽ നേരിയ മാറ്റം ഉണ്ടായേക്കാം

ഈ ജില്ലകളിൽ പരസ്യ പ്രചാരണം നാളെ വൈകീട്ട് അവസാനിക്കും

മൊയ്തീൻ നിശ്ചിത സമയത്തിന് മുൻപ് വോട്ട് ചെയ്തെന്ന പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കലക്ടറോടും റിട്ടേണിങ്ങ് ഓഫീസറോടും റിപ്പോർട്ട് തേടി

രും അവസാനഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം കൂടി ബാക്കി നിൽക്കെ കണ്ണൂർ ജില്ലയിൽ പ്രചാരണം പാരമ്യത്തിലെത്തി വിവിധ പാർട്ടികളുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ ജില്ലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും മന്ത്രിമാരായ ഇ

ജയരാജൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ

ശൈലജ മുസ്ലീംലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി

കുഞ്ഞാലിക്കുട്ടി ബിജെപി നേതാക്കളായ കുമ്മനം രാജശേഖരൻ സുരേഷ് ഗോപി എന്നിവരും ഇന്ന് കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും അതിനിടെ ജില്ലയിൽ പ്രചാരണത്തിന്റെ കലാശക്കൊട്ട് ഒഴിവാക്കാൻ തീരുമാനമായി രംഭ കോഴിക്കോട് ജില്ലയിൽ എഐസിസി ജനറൽ സെക്രട്ടറി കെ

വേണുഗോപാൽ ഇന്ന് തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും വടകരയിൽ നിന്ന് ആരംഭിക്കുന്ന പര്യടന പരിപാടി കോഴിക്കോട്ട് സമാപിക്കും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കും വടകര പുതുപ്പണത്ത് നിന്നാരംഭിക്കുന്ന പരിപാടി തോപ്പയിലിൽ സമാപിക്കും രുര മലപ്പുറം ജില്ലയിലെ പ്രചാരണത്തിന് എൻഡിഎ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി ഇന്നെത്തും പുറത്തൂരിലും വാറങ്കോട്ടും അദ്ദേഹം പ്രചാരണം നടത്തും ബിഡിജെഎസ് സംസ്ഥാനം സെക്രട്ടറിമാരായ കെ

ബിനു രാജൻ മഞ്ചേരി തുടങ്ങിയവരും പ്രചാരണത്തിൽ പങ്കെടുക്കും രുഭ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിലെ ഇലക്ട്രോണിക് വോട്ടിങ്ങ് മെഷീനുകളുടെ സജ്ജീകരണം പുരോഗമിക്കുന്നു

യന്ത്രങ്ങളിൽ വാലറ്റ് ലേബൽ പതിക്കുന്ന ജോലി ഇന്നലെ ആരംഭിച്ചു

രുമ കണ്ണൂർ ജില്ലയിൽ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ പോളിങ്ങ് ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷ ഒരുക്കും മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ച വനാതിർത്തിയോട് ചേർന്ന ബൂത്തുകളിലാണ് നിരീക്ഷണവും സുരക്ഷയും ഒരുക്കുന്നത് തണ്ടർ ബോൾട്ട് സേനാംഗങ്ങളെ ബൂത്തുകൾക്ക് സമീപം വിന്യസിക്കും രും ചൊവ്വാഴ്ച്ച സമാപിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ സാമഗ്രികൾ ഞായറാഴ്ച്ചയോടെ പൂർണ്ണമായി മാറ്റണമെന്ന് കൊല്ലം ജില്ലാ കലക്ടർ നിർദേശം നൽകി ഫ്ലക്സ് ബോർഡുകളും നോട്ടീസുകളും പോസ്റ്ററുകളും അതാത് പാർട്ടിക്കാർ തന്നെ പുനചംക്രമണ ഏജൻസികൾക്ക് കൈമാറണം പൊതു സ്ഥലങ്ങളിലെ അജൈവ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിത കർമ്മസേന മുഖേന ക്ലീൻ കേരളക്ക് കൊടുക്കാമെന്നും കലക്ടർ അറിയിച്ചു

പരമാവധി പേരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വിപുലമായ പ്രചാരണ പരിപാടികൾ നടത്താനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗബാധ രും കോവിഡ് വാക്സിൻ വൈകാതെ ലഭിച്ചു തുടങ്ങുമെങ്കിലും ഇതുവരെ പുലർത്തി വന്ന ജാഗ്രത കൈവെടിയാൻ പാടില്ലെന്ന് മുൻ ചീഫ് സെക്രട്ടറിയും മലയാള സർവ്വകലാശാല മുൻ വൈസ് ചാൻസലറുമായ കെ

കാർഷിക ഉൽപ്പന്നങ്ങൾ എവിടേയും വിറ്റഴിക്കാൻ കർഷകരെ സഹായിക്കുന്ന തരത്തിലാണ് പരിഷ്ക്കരണങ്ങൾ നടപ്പാക്കുന്നത് താങ്ങുവിലയും കാർഷികോൽപ്പാദന സമിതികളും നിലനിൽക്കുമെന്നും കേന്ദ്രമന്ത്രി നരേന്ദ്രസിങ്ങ് തോമർ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഗവൺമെന്റ് മാർഗ നിർദേശങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും കർഷക സംഘടനകൾ അത് നിരസിക്കുകയായിരുന്നുവെന്നും തോമർ പറഞ്ഞു

ഇന്ന് വൈകീട്ട് ഏഴരക്ക് എടികെ മോഹൻബഗാൻ ഹൈദരാബാദിനെ നേരിടും രും ഓസ്ട്രേലിയ എ ടീമുമായി ഇന്ത്യയുടെ രണ്ടാം സന്നാഹ ത്രിദിന മത്സരം ഇന്ന് സിഡ്നിയിൽ തുടങ്ങും

രംഭ ഐസിസി ഏകദിന ബാറ്റ്സ്മാൻ റാങ്കിങ്ങിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ വീരാട് കോഫ്ലി ഒന്നാംസ്ഥാനം നിലനിർത്തി ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിലെ മികച്ച പ്രകടനമാണ് കോഹ്ലിയെ ഒന്നാംസ്ഥാനത്ത് നിലനിർത്താൻ സഹായിച്ചത് രുര ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയാനുമതി നൽകുന്ന മെഡിക്കൽ കൌൺസിൽ ഉത്തരവിൽ പ്രതിഷേധിച്ച് അലോപ്പതി ഡോക്ടർമാർ ഇന്ന് രാജ്യവ്യാപകമായി ഒ

രാവിലെ ആറ് മുതൽ വൈകീട്ട് ആറ് വരെയാണ് മെഡിക്കൽ കോളജുകളിൽ ഉൾപ്പെടെ ഡോക്ടർമാരുടെ സമരം ഗവൺമെന്റ് സ്വകാര്യ മേഖലകളിലെ ഡോക്ടർമാർ ഐ എം എ ആഹ്വാനം ചെയ്ത സമരത്തെ പിന്തുണച്ചാണ് ബഹിഷ്ക്കരണം അത്യാഹിത വിഭാഗത്തേയും കോവിഡ് ചികിത്സയേയും സമരത്തിൽ നിന്ന് ഒഴിവാക്കി അടിയന്തര ശസ്ത്രക്രിയകൾ പ്രസവ കേസുകൾ ഐസിയു ഇൻപേഷ്യന്റ് കെയർ എന്നീ വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കും എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ ഇന്ന് ഉണ്ടാവില്ല

എ യുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ രാവിലെ പതിനൊന്നരക്ക് രാജ്ഭവൻ ധർണ്ണയും നടത്തും ദ്ദേ അടുത്ത മാസത്തെ പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷന്റെ ഭാഗമായി ഗൾഫ് സഹകരണ കൌൺസിലുമായി ചേർന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ന് രണ്ട് ഓൺലൈൻ ചർച്ചകൾ സംഘടിപ്പിക്കും കേന്ദ്രസഹമന്ത്രി വി

മുത്തങ്ങ കല്ലൂർ ഭാഗത്ത് വാഹന പരിശോധനയിലാണ് ലോറിയിൽ കടത്തിയ കഞ്ചാവ് കണ്ടെത്തിയത് കോഴിക്കോട് മുക്കം കൂടരഞ്ഞി സ്വദേശികളായ സ്വാലിഹ് ആബിദ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു